ഗവർണർമാരുടെ സമ്മേളനം ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും അഭിസംബോധന ചെയ്യും

കൊച്ചി ഉൾപ്പെടെ രാജൃഖ്ത്ത് മെട്രോ ട്രെയിൻ സർവ്വീസുകൾ ന് ഇന്ന് ഭാഗികമായി പ്പുനഃരാരംഭിക്കുന്നു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വീഡിയോ കോൺഫറൻസിലൂടെ യോഗത്തെ അഭിസംബോധന ചെയ്യും ഉന്നത വിദ്യാഭ്യാസമേഖലയുടെ പരിവർത്തനത്തിൽ വിദ്യാഭ്യാസ നയത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർ സർവകലാശാല വൈസ് ചാൻസലർമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും

അഫ്ഗാനിസ്ഥിട്ട്നിലെ സമാധാനവും സുസ്ഥിരതയും ഉൾപ്പെടെയുള്ള പ്രാദ്ധേശിക് സുരക്ഷാ വിഷയങ്ങളിൽ ഇരുവരും അഭിപ്രായങ്ങൾ കൈമാറി ് ഇന്ത്യയും ഇറാനും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഭൂഷാപര്വും സാംസ്കാരികവുമായ ബന്ധവും നേതാക്കൾ എടുത്തു പ്പറ്ഞു

ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വെബിനാറിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അദ്ധ്യക്ഷനാവും

രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ വെബിനാറിൽ പങ്കെടുക്കും

ഡൽഹി ലക്നൌ ചെന്നൈ ബംഗളുരു ഹൈദരാബാദ് അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മെട്രോ സർവ്വീസുകളും ഇന്ന് പുനരാരംഭിക്കും യാത്രക്കാർ സാമൂഹ്യ അകലവും മുഖാവരണം ധരിക്കുന്നതും ഉൾപ്പെടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം ഡൽഹിയിൽ ആദ്യഘട്ടത്തിൽ രണ്ട് ഷിഫ്റ്റുകളാണ് ആരംഭിക്കുന്നത്

കണ്ടെയിൻമെന്റ് സോണുകളിൽ മെട്രോ സ്റ്റേഷനുകളും പ്രവേശന കവാടങ്ങളും തുറക്കില്ല തെർമൽ സ്ക്രീനിങ്ങിനു ശേഷമേ യാത്രക്കാരെ സ്റ്റേഷന് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ

പേട്ടയിൽ നിന്നുള്ള ആദ്യത്തെ ട്രെയിനിന് ഇരുവരും ചേർന്ന് പച്ചക്കൊടി കാട്ടും മെട്രോ തൃപ്പുണ്ണിത്തുറ വരെ നീട്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഇന്ന് തുടക്കമാവും

എല്ലാവർക്കും പോഷകാഹാരവും ആരോഗൃവും ഉറപ്പാക്കുന്നതിൽ പൊതുപങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ദേശീയ പോഷണ മാസാചരണത്തിന്റെ ലക്ഷ്യം

കോവിഡ് പശ്ചാത്തലത്തിൽ എല്ലാ പരിപാടികളും ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയാകണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി

ചന്ദ്രയാൻ രണ്ടിന് സമാനമായി ലാൻഡറും റോവറും ഉൾപ്പെടുന്നതാവും ചന്ദ്രയാൻ മൂന്ന് ദൌത്യം എന്നാൽ ഈ ദൌത്യത്തിൽ ഓർബിറ്ററിന്റെ സാന്നിധ്യമുണ്ടാകില്ല ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കുന്ന രാജ്യത്തെ ആദ്യ പദ്ധതിയായ ഗഗൻയാന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും ശ്രീ

തമിഴ്നാട്ടിലെയും ജമ്മു കശ്മീരിലെയും നാടൻ കലാപരിപാടികളാണ് ഓൺലൈനായി അവതരിപ്പിക്കുക

ശിവരാമ ഹെബ്ബാറിനും ഭാര്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചു

കർണ്ണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ മന്ത്രിമാരായ ശ്രീരാമലു സി

രവി ആനന്ദ് സിംഗ് ബി സി പാട്ടീൽ കോൺഗ്രസ്സ് സംസ്ഥാന അദ്ധ്യക്ഷൻ ഡി

ശിവകുമാർ എന്നിവർക്കും നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു

ദേശീയ തലസ്ഥാനത്തെ കോവിഡ് സാഷ്ചര്യത്തെക്കുറിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ

നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലെർട്ട് ആണ്

എസ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷവിഭാഗം ഡബിൾസ് കാർട്ടർ ഫൈനൽ ഇന്ന്